എസ്

അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട് കേസിൽ സി ബി ഐ

മുഖ്യമന്ത്രി പിണറായി വിജയൻ

എസ്

സിപിൽ പ്പോലീസ് ഓഫീസർ പരീക്ഷയിൽ ന് നിയമന നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പി എസ് സി ചെയർമാൻ

മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും

സി പൊലീസ് കോൺസ്റ്റബിൾ പരീക്ഷാ തട്ടിപ്പിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഗവൺമെന്റ് അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം ഇന്നും നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വിജയൻ

പരീക്ഷാ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നുവരുന്നതായി മുഖ്യമന്ത്രി പിണറായി ഷിജയൻ പ്രതിപക്ഷത്തിന് മറുപടി നൽകി അന്വേഷണത്തിൽ പ്രതിക്ടിൽപ്പ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ക്രമക്കേട്ട് ് ന്ട്ടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഫോറൻസിക് ഫ്ലും കിട്ടാൻ കാലതാമസം വന്നതുകൊണ്ടാണ് പോലീസിന് യ്മാസമയം കുറ്റപത്രം സമർപ്പിക്കാനാകാത്തതെന്നും ക്മുഖ്യമ്ന്ത്രി പറഞ്ഞു

ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി മുഖ്യമന്ത്രി ഏത് കേസ് വന്നാലും ശക്തമായ നടപടി സ്വീകരിച്ച് കൃത്യമായി അന്വേഷണം പൂർത്തിയാക്കുമെന്ന പല്ലവിയാണ് ആവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി മത്സര പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതോടെ പി എസ് സി യുടെ വിശ്വാസ്യതയും സുതാര്യതയും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് അടിയന്തിര പ്രമേയം അവതരിപ്പിച്ച അനൂപ് ജ്ക്കബ് എം എൽ എ

ചോർന്നിട്ടില്ലെന്നും കോപ്പിയടിച്ചത് ചോദ്യപേപ്പർ മുന്ന് പേർ മാത്രമാണെന്നും കാണിച്ച് ക്രൈംബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം മൂവായിരം പേർക്കെങ്കിലും നിയമനം ലഭിക്കുമെന്നും ശ്രീ സക്കീർ പറഞ്ഞു

തോട്ടവിളകളായ റ്റബർ കാപ്പി തേയില ഏലം എന്നിവ കൃഷിചെയ്യുന്ന ഭൂമി ഏഴരി ഏക്കർ വരെ കൈവശം വച്ചിരിക്കുന്നവരെയാണ് കർഷ്ടക്രുടെ ് പട്ടികയിൽപ്പെടുത്തുക ബിൽ അടുത്ത ദിവസം നിയമസഭ പ്പ്രീഗണിക്കും പൊതുമേഖല സംരക്ഷണം സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെതിരായ കേന്ദ്ര നയത്തെ ശക്തിയുക്തം നേരിടുമെന്ന് വ്യവസായ മന്ത്രി ഇ

ജയരാജൻ നിയമസഭയിൽ പറഞ്ഞു പൊതുമേഖല സ്ഥാപനങ്ങളെ സംരക്ഷിച്ച് സ്വകാര്യ മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന നയമാണ് സംസ്ഥാന ഗവൺമെന്റ് പിന്തുടരുന്നത് സംസ്ഥാനം അനുവദിച്ച ഭൂമി ഉപയോഗിച്ച് പ്രവർത്തനം തുടങ്ങിയ കേന്ദ്ര പൊതുമേഖല സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടുകയോ കൈമാറുകയോ ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ശ്രീ ജയരാജൻ ചോദ്യോത്തരവേളയിൽ ഇടപെട്ട് പറഞ്ഞു

അതേസമയം തുടരന്വേഷണത്തിന്റെ ഭാഗമായി ശാസ്ത്രീയ പരിശോധന ഫലം കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം നിലവിൽ കേസിൽ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ലെങ്കിലും വൈകാതെ നൽകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ജയിൽ മാറ്റം ഇപ്പോൾ പരിഗണനയില്ലെന്നാണ് സൂചന സി പി എം കോഴിക്കോട് സൌത്ത് ഏരിയാകമ്മറ്റിയും വിഷയം പരിശോധിക്കുന്നുണ്ട്

ചുമത്തിയത് നീതികരിക്കാനാവില്ലെന്ന് ഫ്സിപ്പിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു

ഇക്കാര്യത്തിൽ തെറ്റു തിരുത്താൻ പോലീസ് തയ്യാറാവണമെന്നും പ്രകാശ് കാരാട്ട് കൊച്ചിയിൽ പറഞ്ഞു

രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കലോൽസവം ചാല ഗവ

ആരോഗ്യമന്ത്രി കെ കെ ശൈലജ് കലോൽസവം ഉദ്ഘാടനം ചെയ്യും വിവിധ മേഖലകളിൽ പ്രാഗത്ഭ്യം തെളിയിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ചടങ്ങിൽ ആദരി ക്കും സംസ്ഥാന വനിത ശിശുവികസന വകുപ്പാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത്

പേരണ്ടൂർ കനാലിന്റെ നവീകരണം ഫലപ്രദമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജി പരിഗണിക്കവേയാണ് കോടതിയുടെ ഈ നിർദ്ദേശം ് വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ കർമസമിതി രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഗവൺമെന്റ് കോടതിയെ അറിയിച്ചു

സവാള സംഭരിച്ച് കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യാൻ സപ്ലൈകോയ്ക്ക് ഗവൺമെന്റ് അനുമതി നൽകി

കുറഞ്ഞ വിലയ്ക്ക് സവാള സംഭരിച്ച് വിതരണം നടത്താനാണ് സപ്പൈകോ ഉദ്ദേശിക്കുന്നത്

കേന്ദ്ര മൈനോരിറ്റി അഫയേഴ്സ് മന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി അധ്യക്ഷത വഹിക്കും

രാവിലെ മറ്റ് ജീവനക്കാർ വരുന്നതിന് മുമ്പ് ഓഫീസിലെത്തിയ രാമകൃഷ്ണൻ തൂങ്ങിമരിക്കുകയായിരുന്നു ശമ്പളം മുടങ്ങിയതിനെ തുടർന്നാണ് രാമകൃഷ്ണൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് അറിയിച്ചു

മാത്യുവിനെ കേസിൽ അറസ്റ്റ് ചെയ്യാൻട്താ്മരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ്ക്ലാസ് മജിസ് ട്രേറ്റ് കോടതി ചൊവ്വാഴ്ച അനുമതി നൽകിയിരുന്നു

തമിഴ്നാട് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ആന്ധ്രയെ പരാജയപ്പെടുത്തിയത്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

ചലച്ചിത്ര അക്കാദമിയുടെ കണ്ണൂർ കോഴിക്കോട് തൃശൂർ കോട്ടയം മേഖലാകേന്ദ്രങ്ങളിലും തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിലും ഒര്ക്ഫ് ലൈൻ രജിസ്ട്രേഷന് സൌകര്യമുണ്ടായിരിക്കും

കേന്ദ്ര സംഘം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പ്രവർത്തനം വിലയിരുത്താൻ ആലപ്പുഴയിൽ കേന്ദ്ര സംഘം എത്തി ചേർത്തല കഞ്ഞിക്കുഴി ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് ഗ്രാമ വികസന മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുടെ സംഘം എത്തിയത് സ്കൂൾ കായികമേള കോഴിക്കോട് ജില്ല സ്കൂൾ കായികമേളയിൽ സംഘർഷം കായിക അധ്യാപകരെ ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക തുല്യ ജോലിക്ക് തുല്യവേതനം നൽകുക എന്നീ ആവശ്യങ്ങളുമായി സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം കാൻസർ ബോധവൽക്കരണം ക്യാൻസർ ബോധവൽക്കരണ സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന് സമൂഹ മാധ്യമങ്ങൾക്കും വലിയ പങ്കുവഹിക്കാനാകുമെന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ ടി

എന്നാൽ ഇത്തരം സന്ദേശങ്ങൾ കൈമാറുന്നതിലും വിമർശിക്കുന്നതിലും പക്ഷത പാലിക്കണമെന്നും കലക്ടർ പറഞ്ഞു